തൊഴിൽ ദാതാവും ചർച്ചുകളിലൂടെ പരിഹരിക്കണമെന്ന് സൂപ്രീം കോടതി

മുക്തി നേടി കേരളത്തിൽ കോവിഡ് നിരീക്ഷണത്തിലായിരുന്ന രോഗി മരിച്ചു

ചൈനയും ചർച്ചകൾ തുടരുകയാണെന്ന് വിദേശകാര്യ മന്താലയം

രത്തൻലാലിന് ഈ വർഷത്തെ ലോക ഭക്ഷ്യ പുരസ്ക്കാരം

തൊഴിലാളികൾ ഇല്ലാതെ ഒരു വൃവസായവും നിലനിൽക്കില്ലെന്നും ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ആയില്ലെങ്കിൽ ഉത്തരവാദിത്തപെട്ട തൊഴിൽ ഫോറങ്ങളെ സമീപിക്കാവുന്നത് ആണെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി

സംസ്ഥാനങ്ങളുടെ വരുമാന്ന നൃഷ്ടവും നഷ്ട പരിഹാരവും യോഗം ചർച്ച ചെയ്യുന്നുണ്ട്

ഇരിക്കൂർ സ്വദേശി ഹുസ്സൻകുട്ടിയാണ് മരിച്ചത്

മുംബൈയിൽ നിന്ന് വന്ന ഇദ്ദേഹം മറ്റ് അസുഖങ്ങൾ കാരണം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇയാളുടെ സ്രവ പരിശോധന ഫലം ഇന്നു ലഭിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു

പ്രശ്നം സമാധാനപരമായി പരിഹരിക്കാനാണ് ധാരണയെന്ന് വിദേശകാരൃ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു വിശദ വിവരങ്ങളുമായി പ്രിയ

സൈനിക നയതന്ത്ര തലങ്ങളിൽ ചർച്ചകൾ നടക്കുകയാണ് മേഖലയിൽ സ്ഥിരതയും സമാധാനവും ഉറപ്പാക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് പരസ്പരബന്ധം വളർത്താനുതകുന്ന രീതിയിലാണ് ചർച്ചകളെന്നും ശ്രീവാസ്തവ പറഞ്ഞു

അയൽരാജ്യങ്ങളുമായി ഇന്ത്യ മികച്ച ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു നേപ്പാളുമായി സാംസ്കാരികവും സൌഹൃദവുമായ ബന്ധം ഇന്തൃയ്ക്ക് വർഷങ്ങളായി തുടരുന്നതാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണിം

പൂർണമായും വിർചൽ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ന്യൂഡൽഹിയിൽ നടക്കുന്ന പ്രാരംഭചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയാകും സ്വാശ്രയഭാരതത്തിനു പുതിയ പ്രതീക്ഷകളുമായി കൽക്കരിമേഖല തുറന്നു നൽകുമ്പോൾ എന്ന പ്രമേയം അടിസ്ഥാനമാക്കിയാണ് പരിപാടി നടത്തുന്നതെന്ന് കൽക്കരി ഖനന മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി പ്രഹ്താദ് ജോഷി ട്വിറ്ററിൽ അറിയിച്ചു

കാലാവസ്ഥാ വൃതിയാനം വരാതെയും പ്രകൃതിവിഭവം പരമാവധി സംരക്ഷിച്ചും പൂർണ്ണമായും മണ്ണിനെ ആശ്രയിച്ചുള്ള കൃഷിരീതിയിലൂടെ അധികരിച്ച ഭക്ഷ്യാത്പാദന പ്രക്രിയ വികസിപ്പിച്ചെടുത്തിനാണ് അംഗീകാരം

ഗോ എയർ കമ്പനിയുടെ രണ്ട് വിമാനങ്ങൾ കുവൈറ്റിൽ നിന്നുള്ള പ്രവാസികളുമായി വൈകിട്ട് എത്തും

വിദേശ ജീവജാലങ്ങളുടെ ഡേറ്റാ ബേസ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം

ലോക്ക്ഡൌണിനെ തുടർന്ന് പാവപ്പെട്ടവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്നതിന്റെ ആദ്യ ഘട്ടമായാണ് പി

വൈ നടപ്പാക്കിയത്

പിന്നീട് കുടിയേറ്റത്തൊഴിലാളികളടക്കമുള്ളവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കീഴിൽ ഭക്ഷ്യധാന്യങ്ങളും എഫ്

ഐ കേരള ജനറൽ മാനേജർ വി

ലോക്ക്ഡൌൺ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നെങ്കിലും കേരള എഫ് സി

സംസ്ഥാന ഗവൺമെന്റ് നിശ്ചിതസമയത്തിനുള്ളിൽ അനുവദിച്ച മുഴുവൻ ഭക്ഷ്യധാനൃവും ഏറ്റെടുത്തു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇത്തരത്തിലുള്ള ഒരു തീരുമാനവും എടുത്തിട്ടിട്ടില്ലെന്ന് പി ഐ ബി ഫാക്ട് ചെക്കിലൂടെ കേന്ദ്രസർക്കാർ വൃക്തമാക്കീ

കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി ബാലവേല കൂടാൻ കാരണമാകുമോ എന്ന ആശങ്കയിലാണ് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകൾ ബാലവേല ബാല ഭിക്ഷാടനം തെരുവു ബാല്യം എന്നിവ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശു വികസന വകുപ്പ് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ശരണബാലൃം പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി കെ

കന്നിമത്സരത്തിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവച്ചെന്നുമാത്രമല്ല വിജയ ഗോൾ നേടാനും ഛേത്രിക്ക് കഴിഞ്ഞു